അതീവ ജാഗ്രതാ നിർദ്ദേശം

ശൈലജ കോഴിക്കോട്ട് ഇന്ന് ആരോഗ്യവകുപ്പ് ഉദ്യോഗ സ്ഥരുടെ അടിയന്തരയോഗം വിളിച്ചു ദുരിതാശ്ചാസ ശുചീകരണ പ്രവർത്തനങ്ങളിൽ വീഴ്ച വരുത്തുന്ന തദ്ദേശ ഭരണ സ്ഥാപന ഉദ്യേഗസ്ഥർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി എ

സംസ്ഥാനത്ത് എലിപ്പനി പടരുന്ന സാഹചര്യത്തിൽ എല്ലാ ജില്ലകളിലും ആരോഗ്യ വകുപ്പ് അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകി നേരത്തെ തൃശൂർ പാല ക്കാട് കോഴിക്കോട് മലപ്പുറം കണ്ണൂർ ജില്ലകളിലായിരുന്നു ജാഗ്രതാ മുന്നറിയിപ്പ് നൽകിയിരുന്നത്

കോഴിക്കോട്ട് മൂന്നും മലപ്പുറത്തും പാലക്കാട്ടും രണ്ടു വീതവും തിരുവനന്തപുരം തൃശൂർ എറണാ കുളം ജില്ലകളിൽ ഒരാൾ വീതവുമാണ് എലിപ്പനി ബാധിച്ച് മരിച്ചത്

ഇവരിൽ ഏറെയും കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽനിന്നാണ് എലിപ്പ നിക്കു പുറമെ ഡെങ്കിപ്പനി മലേറിയ മഞ്ഞപ്പിത്തം മെനിഞ്ചൈറ്റിസ് വയറിളക്കം ചിക്കൻപോക്സ് തുടങ്ങിയവയും മിക്കയിടങ്ങളിലും പടർന്നുപിട്ടിക്കുന്നതായി റിപ്പോർട്ടുണ്ട് കോഴിക്കോട്ട് കഴിഞ്ഞ ദിവസം എച്ച് വൺ എൻ വൺ മരണവും റിപ്പോർട്ട് ചെയ്തു പനി നേരിടാൻ ആരോഗ്യ വകുപ്പ് സുസജ്ജമാണെന്ന് മന്ത്രി കെ കെ ശൈലജ പറഞ്ഞു നിപ വൈറസിനെ നേരിട്ട മാതൃകയിൽ എലിപ്പനിയേയും നേരിടുമെന്നും മന്ത്രി കണ്ണൂർ വേങ്ങാട് പറഞ്ഞു മലിന ജലവുമായി സമ്പർക്കമുണ്ടായവർ എലിപ്പനി സാധ്യത കണ ക്കിലെടുത്ത് പ്രതിരോധ മരുന്ന് കഴിക്കണമെന്ന് ആരോഗ്യവകുപ്പ് ആവർത്തിച്ച് നിർദ്ദേശം നൽകി ഡോക്സി സൈക്സിൻ ഗുളിക ആഴ്ചയിൽ രണ്ടെണ്ണം നിർബ ന്ധമായും കഴിക്കണമെന്നാണ് നിർദ്ദേശം സംസ്ഥാനത്തെ എല്ലാ ആരോഗ്യകേന്ദ്ര ങ്ങളിലും ഗവൺമെന്റ് ആശുപത്രികളിലും ഈ ഗുളിക ലഭ്യമാണ് കോഴിക്കോട് ജില്ലയിൽ എലിപ്പനി പ്ടരുന്ന സാഹചര്യത്തിൽ മന്ത്രി കെ

ഇന്ന് ഉച്ചകഴിഞ്ഞ് മൂന്നിന് കലക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിലാണ് യോഗം

രാമകൃഷ്ണന്റെ അധ്യക്ഷതയിൽ ജില്ലയിലെ എലിപ്പനി പ്രതിരോധ പ്രവർത്തന ങ്ങൾ അവലോകനം ചെയ്യാൻ ചേർന്ന യോഗം തീരുമാനിച്ചു

സാമൂഹിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ ഒ പി വൈകിട്ട് അഞ്ചു മണി വരെ പ്രവർത്തിക്കും

് ് ് ് ് ് ് ദുരിതാശ്വാസ ശുചീകരണ പ്രവർത്തനങ്ങളിൽ സഹകരിക്കാതിരിക്കു കയോ വീഴ്ച വരുത്തുകയോ ചെയ്യുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപന ഉദ്യോഗ സ്ഥന്മാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി എ

മൊയ്തീൻ പറ ഞ്ഞു പ്രളയ ദുരിതാശ്ചാസ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വിവിധ വകുപ്പുകളുടെ പ്രവർത്തനം വിലയിരുത്തുന്നതിന് കൊച്ചിയിൽ ചേർന്ന അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി നിർമ്മാണ പ്രവൃത്തികൾക്ക് സാങ്കേതികാനു മതി നൽകുന്ന കാര്യത്തിൽ കാലതാമസം വരുത്തരുതെന്നും മ്പ്രി പറഞ്ഞു കുടി വെള്ള വിതരണം കാര്യക്ഷമമായി നടത്താനും വിലക്കയറ്റം നിരീക്ഷിക്കാനും റേഷൻസാധനങ്ങളുടെ ലഭ്യത ഉറപ്പുവരുത്താനും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് മന്ത്രി നിർദ്ദേശം നൽകി പ്രളയ ദുരിതാശ്ചാസത്തിനും കേരളത്തിന്റെ പുനർനിർമ്മിതിക്കും ധന സമാഹരണത്തിനുമായി സംസ്ഥാന ഭാഗൃക്കുറി വകുപ്പ് പുറത്തിറക്കുന്ന നവകേ രള ഭാഗ്യക്കുറി ടിക്കറ്റ് ഇന്ന് പ്രകാശനം ചെയ്യും ആലപ്പുഴയിൽ രാവിലെ നട ക്കുന്ന ചടങ്ങിൽ മന്ത്രി ഡോക്ടർ തോമസ് ഐസക് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയ്ക്ക് ആദ്യ ടിക്കറ്റ് നൽകും മന്ത്രി പി തിലോത്തമൻ ആദ്യ വില്പന നടത്തും

ഒക്ടോബർ മൂന്നിനാണ് നറുക്കെടുപ്പ് ഒപെക് രാജ്യങ്ങൾ ക്രൂഡ് ഓയിൽ ഉല്പാദനം കുറച്ചതും ഡോളറിനെ തിരെ ആഗോള കറൻസികൾ ദുർബലമായതുമാണ് രാജ്യത്ത് പെട്രോൾ ഡീസൽ വില ഉയരാൻ കാരണമെന്ന് കേന്ദ്ര പെട്രോളിയം മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ വ്യക്ത മാക്കി വില വർദ്ധന താൽക്കാലികമാണെന്നും അദ്ദേഹം ഗുജറാത്തിലെ സൂറ ത്തിൽ പറഞ്ഞു

് ് ് ് ് ് ് ഇംഗ്ലണ്ടിനെതിരായ നാലാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യക്ക് തോൽവി

നാലാം ദിനം ക്യാപ്റ്റൻ വിരാട് കൊഹ്ലിയും അജിങ്കൃ രഹാനയും നാലാം വിക്കറ്റിൽ പടുത്തുയർത്തിയ സെഞ്ചറി കൂട്ടുകെ ട്ടിൽ ഇന്ത്യ വിജയം സ്വപ്നം കണ്ടെങ്കിലും കൊഹ്ലി മുടങ്ങിയതോടെ പരാ ജയത്തിലേക്ക് നീങ്ങുകയായിരുന്നു അഞ്ചു മത്സരങ്ങളടങ്ങിയ പരമ്പരയിൽ മൂന്ന് മത്സരങ്ങളും ജയിച്ചാണ് ഇംഗ്ലണ്ട് പരമ്പര നേടിയത്

സമാ പന ചടങ്ങിൽ ജെലോറ ബുങ്കർണോ സ്റ്റേഡിയം തിങ്ങിനിറഞ്ഞ കാണികളെ സാക്ഷി യാക്കി അടുത്ത ഏഷ്യൻ ഗെയിംസിന് ആതിഥ്യമരുളുന്ന ചൈന ദീപശിഖയും പതാകയും ഏറ്റുവാങ്ങി വനിതാ ഹോക്കി ടീം ക്യാപ്റ്റൻ റാണി രാംപാൽ സമാ പന ചടങ്ങിൽ ഇന്ത്യൻ പതാകയേന്തി ഏഷ്യൻ ഗെയിംസ് ചരിത്രത്തിലെ ഏറ്റവും മികച്ച മെഡൽ കൊയ്ത്തു നടത്തിയാണ് ജക്കാർത്തയിൽ നിന്ന് ഇന്ത്യൻ സംഘം മടങ്ങുന്നത്

ഏഷ്യൻ ഗെയിംസ് ചരിത്രത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ഇന്ത്യൻ കായികതാരങ്ങളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു മികച്ച മെഡൽ കൊയ്ത്തു നടത്തിയ ജക്കാർത്ത ഏഷ്യൻ ഗെയിംസ് ചരിത്രമാണെന്നും പങ്കെ ടുത്ത ഓരോ കായികതാരവും രാജ്യത്തിന്റെ അഭിമാനമാണെന്നും പ്രധാനമന്ത്രി ടിറ്ററിൽ കുറിച്ചു

നെടുമ്പാശ്ശേരിയിൽ തന്നെയാവും ഹാജിമാർ മട ങ്ങിയെത്തുകയെന്ന് ജിദ്ദയിലെ ഇന്ത്യൻ ഹജ്ജ് മിഷൻ അറിയിച്ചു ലക്ഷദ്വീപ് മാഹി എന്നിവിടങ്ങളിൽ നിന്നുപോയ ഹാജിമാരും നെടുമ്പാശ്ശേരി വഴിയാണ് തിരി ച്ചെത്തുക

വെള്ളം കയറി പുഴ പെട്ടെന്ന് കരകവിഞ്ഞത് ജനങ്ങളെ പരിഭ്രാന്തരാക്കി രാത്രിയോടെ വെള്ളം ഇറങ്ങി ആറളം വനത്തിൽ ഉരുൾ പൊട്ടലുണ്ടായതാണ് പുഴ കരകവിയാൻ കാരണമെന്ന് സംശയിക്കുന്നു പ്രളയത്തിൽ തകർന്നടിഞ്ഞ പമ്പ ത്രിവേണിയിലെ രണ്ട് മേൽപ്പാല ങ്ങളും മണ്ണ് നീക്കി കണ്ടെടുത്തു പമ്പാ നദിയിലെ വെള്ളം പാലത്തിനടിയിലൂടെ തിരിച്ചുവിടാൻ പണി പുരോഗമിക്കുകയാണ് കന്നി മാസ പൂജയ്ക്ക് ഭക്തരെ പമ്പ യിൽ നിന്നും സന്നിധാനത്തേക്ക് കടത്തിവിടാൻ കഠിന ശ്രമത്തിലാണ് ദേവസ്വം ബോർഡ്

ങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ജലസേചന വകുപ്പ് അധികൃതർ അറിയിച്ചു മഴ യിലും വെള്ളപ്പൊക്കത്തിലും ഡാമിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും അണ ക്കെട്ടിന്റെ സുരക്ഷയെ ബാധിക്കില്ലെന്നും കേടുപാടുകൾ പരിഹരിക്കുന്നതിന് അടി യന്തര നടപടി സ്വീകരിച്ചുവരികയാണെന്നും ഇറിഗേഷൻ ആന്റ് റിസർച്ച് ബോർഡ് ചീഫ് എഞ്ചിനിയർ അറിയിച്ചു ജലനിരപ്പ് താഴ്ന്നതിനെ തുടർന്ന് ഇടുക്കി അണക്കെട്ടിന്റെ രണ്ട് ഷട്ടറുകൾ അടച്ചു

ചരക്ക് വാഹന ഗതാഗതത്തിനും ഏർപ്പെടുത്തിയിരുന്ന നിരോധനം പിൻവലിച്ചതായി ജില്ലാകളക്ടറും ജില്ലാ ദുരന്തനിവാരണ അതോറിറ്റി ചെയർമാനുമായ കെ ജീവൻബാബു അറിയിച്ചു

റോഡുകളുടെ പുനരുദ്ധാരണത്തിനായി നിയോജക മണ്ഡല അടിസ്ഥാനത്തിൽ എസ്റ്റിമേറ്റ് തയ്യാ റാക്കി വരികയാണ്

യൂണിഫോമുകൾ ഭാഗികമായി വകുപ്പ് നൽകും നോട്ട് ബുക്ക് ഉൾപ്പെടെ മറ്റ് വസ്തുക്കൾ സന്നദ്ധ സംഘടനകളുടെയും വൃക്തികളുടെയും സഹകരണത്തോടെ ലഭ്യമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു

ന്യായാധിപന്മാരും ബാർ അസോസിയേഷനിലെ വക്കീലന്മാരും ഗുമസ്തരും ചുമ ടെടുത്തു രാജ്യത്തിന് അകത്തും പുറത്തുനിന്നുമെത്തുന്ന ടൺ കണക്കിന് ഭക്ഷണ സാധനങ്ങളും വസ്ത്രങ്ങളും കമ്പിളി പുതപ്പുകളും ക്രമീകരിക്കുന്നതിന് ഇൻഡോർ സ്റ്റേഡിയത്തിൽ ആഴ്ചകളായി നടക്കുന്ന പ്രവർത്തനങ്ങൾക്ക് ഇന്നലെ ബാർ അസോസിയേഷനാണ് നേതൃത്വം നൽകിയത്

കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് കാഴ്ച വൈകല്യമുള്ളവ രിൽ നിന്ന് സ്വരൂപിച്ച ഒരു ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശാസ നിധിയി ലേക്ക് സംഭാവന നൽകി

സോഷ്യൽ മീഡിയയിൽ അപമാനിക്കപ്പെടുകയും ചെയ്തതിനെ തുടർന്ന് ആത്മഹത്യ ചെയ്ത ഷാജിദിന്റെ മരണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ തിരൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘത്തെ നിയോഗിച്ചു ഷാജിദിനെ കെട്ടിയിട്ട് മർദിച്ചവർക്ക് എതിരെ പോലീസ് നടപടി എടുത്തിട്ടുണ്ട് അതിനിടെ സംഭവത്തിൽ സ്വമേധയാ കേസെടുത്ത സംസ്ഥാന യുവജന കമ്മീഷൻ ജില്ലാ പോലീസ് മേധാവിയിൽ നിന്ന് റിപ്പോർട്ട് ആവശ്യപ്പെട്ടു ് ് ് ് ് ് ് കണ്ണൂർ കണ്ണവത്തെ എബിവിപി പ്രവർത്തകൻ ശ്യാമപ്രസാദ് വധക്കേസിലെ മുഖ്യ സൂത്രധാരനെ പോലീസ് അറസ്റ്റ് ചെയ്തു